വാരം ആഘോഷിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കീ ബാത്തിൽ

രാജ്യം തുറന്ന മനസ്സോടെ സ്പ്രീക്രിച്ചെന്നും നീതി പീഠത്തോടുള്ള രാജ്യത്തിന്റെ ആദരവ് ഏറിയതായും പ്രധാനമന്ത്രി

നിരോധനത്തിന്റെ ഭാഗമായി ബദൽ ഉത്പ്പന്നങ്ങളുടെ പ്രചാരണത്തിന് ഹരിതകേരളം മിഷൻ കൃാമ്പയിൻ സംഘടിപ്പിക്കും

സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന കായികമേള കളിക്കളത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി

ഇതുമായി ബന്ധപ്പെട്ട് സ്കൂളുകൾക്ക് റാങ്കിംഗിന് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളതായും പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കീ ബാത്തിൽ പ്രധാനമന്ത്രി വൃക്തമാക്കി റാങ്കിംഗ് നേടുന്ന സ്കൂളുകൾക്ക് ഫിറ്റ് ഇന്ത്യാ ലോഗോയും പതാകയും ഉപയോഗിക്കാനാകും ഫിറ്റ് ഇന്ത്യാ എന്നാൽ ബുദ്ധി കൊണ്ടുള്ള കസർത്ത് മാത്രമല്ല വിയർപ്പൊഴുക്കാനും ആഹാരശീലങ്ങൾ മാറ്റാനും കേന്ദ്രീകൃത പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ശീലമുണ്ടാക്കാനും ഉള്ളതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ഇന്ന് എൻ

സി ദിനമാണെസ്സ് അനുസ്മരിച്ച പ്രധാനമന്ത്രി മൻ കീ ബാത്ത് പരിപാടിയിലൂടെ ് എൻ സി സി കേഡറ്റുകളുമായി അനുഭവങ്ങൾ പങ്കുവച്ചു

പ്രകൃതി ് പരിസ്ഥിതി ജലം എന്നിവയെല്ലാം നമ്മുടെ വിനോദ യാത്രകളുടെയും ജീവിതത്തിന്റെയും ഭാഗമാകട്ടെയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു രാമക്ഷേത്രത്തെക്കുറിച്ചുള്ള സുപ്രീം കോടതി തീരുമാനം വന്നപ്പോൾ രാജ്യം മുഴുവനും അത് തുറന്ന മനസ്സോടെ സ്വീകരിച്ചു തീർത്തും സ്വാഭാവികതയോടെയും ശാന്തിയോടെയും അത് അംഗീകരിച്ച ജനങ്ങളോട് പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു നീതിപീഠ ത്തോടുള്ള രാജ്യത്തിന്റെ ആദരവ് ഏറിയതായും സുപ്രീം കോടതി തീരുമാനം നീതിപീഠത്തെ സംബന്ധിച്ചടത്തോളം സുപ്രധാന നാഴിക കല്ലാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

മഹാരാഷ്ട്ര സുപ്രീംകോടതി മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസിനെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിച്ച ഗവർണറുടെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് ശിവസേന എൻ സി

കോൺഗ്രസ് എന്നീ കക്ഷികൾ സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി പരിഗണിക്കുന്നു ജസ്റ്റിസുമാരായ എൻ

രമണ അശോക് ഭൂഷൺ സഞ്ചീവ് ഖന്ന എന്നിവരടങ്ങിയ ബഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് ഇന്നലെ രാത്രിയാണ് സഖ്യം സുപ്രീംകോടതിയിൽപ്പ ഹർജി സമർപ്പിച്ചത്

ഈ ഏസ്റ്റേറ്റ് സംസ്ഥാന ഗവൺമെന്റ് ഉടമസ്ഥയിലേക്ക് മാറ്റാനുള്ള നീക്കം നടക്കുന്നതിന് ഇടയാലാണ് എൻഫോഴ്സ്മെന്റിന്റെ നടപടി

ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് വസ്തുക്കളുടെ നിർമ്മാണവും വില്പനയും സൂക്ഷിക്കലും അടുത്ത വർഷം ജനുവരി ഒന്നുമുതൽ സംസ്ഥാനത്ത് നിരോധിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി കൃാംപെയിനിംങ്ങിനെക്കുറിച്ച് ഹരിതകേരളം മിഷൻ എക്സിക്യൂട്ടീവ് വൈസ് ചെയർപേഴ്സൺ ടി

സീമ ആകാശവാണിയോട്

കാര്യവട്ടം എൽ

സി

ഇ ഗ്രീൻ ഫീൽഡ് സ്പോർട്സ് ഹബ്ബ് എന്നിവിടങ്ങളിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് വിജയികൾക്ക് ച്രൊവ്വാഴ്ച വൈകിട്ട് നാലിന് മന്ത്രി എ കെ ബാലൻ സമ്മാനദാനം നിർവ്വഹിക്കും

പുറ വിദേശത്ത് തൊഴിൽ അവസ്ത്രി ലഭിച്ച പട്ടിക ജാതി വിദ്യാർത്ഥി കൾക്കുള്ള തൊഴിൽ കാർഡ്പ് ്ഷിതരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി ബാലൻ എ

പ്രധാൻമന്ത്രി ജൻ വികാസ് കാര്യക്രം പദ്ധതി പ്രകാരമാണ് തുക അനുവദിക്കുന്നത് കോഴിക്കോട് വിമാനത്താവളം കോഴിക്കോട് വിമാനത്താവളത്തിന്റെ വികസനത്തിനും യാത്രക്കാ രെ ആകർഷിക്കുന്നതിനുമായികോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രത്യേക പരിപാടികൾ നടത്താൻ വിമാനത്താവള ഉപദേശക സമിതി യോഗം തീരുമാനിച്ചു കൂടുതൽ അഭ്യന്തര രാജ്യാന്തര സർവീസുകൾ കരിപ്പൂരിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണിത്

മേൽപത്തൂർ ഓഡിറ്റോറിയത്തിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്ര്ൻ ഉദ്ഘാടനം നിർവഹിച്ചു